പൈലറ്റിനെ വിട്ടു നൽകണമെന്നും നയതന്ത്രസ ഹായം ലഭ്യമാക്കണമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയത്തോട് ഔദ്യോഗികമായി ഇന്ത്യ ആവശ്യപ്പെട്ടു ജനീവ കരാർ പാലിച്ച് യുദ്ധ തടവുകാരനായ പൈലറ്റിനെ ഉടൻ വിട്ടു നൽകണമെന്നാണ് ആവശ്യ പ്പെട്ടിരിക്കുന്നത് കേന്ദ്രആഭൃന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ സുരക്ഷ സ്ഥിതി വിലയിരുത്തി ന്യൂഡൽഹിയിൽ മന്ത്രാലയത്തിലെ ഉന്നത് ഉദ്യോഗസ്ഥ രുമായാണ് ചർച്ച നടത്തിയത് കേന്ദ്രമന്ത്രിസ്പഭയുടെ അടിയന്തരയോഗം ഇന്ന് വൈകീട്ട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചേരും കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതിയും യോഗം ചേരുന്നു ണ്ട് രാജ്യരക്ഷാ മന്ത്രി നിർമലാ സീതാരാമൻ നാളെ ജമ്മു കശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കും സൈനിക മേധാവികളുമായി അവർ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ൾ ജമ്മുകശ്മീരിൽ നിയന്ത്രണരേഖക്കടുത്ത് പൂഞ്ച് മേഖലയിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്കു നേരെ പാകിസ്ഥാന്റെ കനത്ത ഷെല്ലാക്രമണം ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു തുടർച്ചയായി ഏഴാം ദിവസമാണ് വെടിനിർത്തൽ ലംഘിച്ച് അതിർത്തിയിലെ ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾക്കു നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തു ന്നത് നിലവിലെ സ്ഥിതി കണക്കിലെടുത്ത് രജൌരി പൂഞ്ച് ജില്ലകളിൽ നിയന്ത്രണ രേഖയ്ക്ക് അഞ്ച് കിലോമീറ്റർ പരിധിയിൽ വരുന്ന വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചിടാൻ അധികൃതർ നിർദേശം നൽകി അതിർത്തിയിൽ താമസിക്കുന്നവരോട് ഷെല്ലാക്രമ ണം കണക്കിലെടുത്ത് വീടിന് പുറത്തിറങ്ങരുതെന്നും നിർദേശിച്ചിട്ടു ണ്ട്

ഭീകരർക്ക് സുരക്ഷിത താവള ങ്ങൾ ഒരുക്കി കൊടുക്കരുതെന്നും സാമ്പത്തിക സഹായം എത്തിക്കു ന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിർത്തി കടന്ന് സൈനിക നീക്കം പാടില്ലെന്നും അമേരിക്ക വൃക്തമാക്കി പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയ ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ലോക രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു

ഇയാൾക്ക് ആഗോള യാത്രാ നിരോധനം ഏർപ്പെടുത്തണമെന്നും ആസ്തികൾ മരവിപ്പിക്കണമെന്നും ആയുധങ്ങൾ നൽകുന്നത് തടഞ്ഞുവെക്കണ മെന്നും ഈ രാജ്യങ്ങൾ നിർദേശിച്ചു മസൂദ് അസറിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്

പാക് അധീന കശ്മീരിലെ ജയ്ഷെ മുഹമ്മദ് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ നടപടിയെ പിന്തുണക്കുന്നതായി അമേരിക്കൻ വിദേശകാരൃ സെക്രട്ടറി മൈക്ക് പോംപിയോ അറിയിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത്ഡോവലിനെ ഫോണിൽ വിളിച്ചാണ് അദ്ദേഹം പിന്തുണ അറിയിച്ചത് ഭീകരവാദത്തിനെതിരായ എല്ലാ നടപ ടികൾക്കും ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ദ്ദ ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ കടുത്ത നടപടി സ്വീകരിക്ക ണമെന്ന് ജപ്പാനും ആവശ്യപ്പെട്ടു പുൽവാമയിൽ ജയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നതായി ജപ്പാൻ വിദേ ശകാര്യ മന്ത്രി താരോ കോനോ ടോക്കിയോയിൽ പറഞ്ഞു ഭീകരർക്ക് സുരക്ഷിത താവളങ്ങൾ ഒരുക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്ക ണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

അതിർത്തിയിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതു പ്രരെ ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിൻ സർവീസ് ഉണ്ടാകില്ലെന്ന് പാക് അധികൃതർ അറിയിച്ചു ഇന്ന് ലാഹോറിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിനാണ് റദ്ദാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി

പ്രവർത്തകരുമായി അല്പ സമയത്തിനകം വീഡിയോ ്കോൺഫറൻസിങിലൂടെ സംവദിക്കും രാജ്യത്തെ പതിനയ്യായിരം കേന്ദ്രങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ മെഗാ സംവാദം ഒരു കോടിയിലേറെ ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും പാർട്ടി പ്രവർത്തകർക്ക് പുറമെ സമൂഹത്തിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്നവരും സംവാദത്തിൽ സംബന്ധിക്കും രാജ്യസുരക്ഷയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് നേട്ട ത്തിനുപയോഗിക്കുകയാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചു സാഹചര്യത്തിന്റെ ഗൌരവം പ്രധാനമന്ത്രി കാണുന്നില്ലെന്നും വേണുഗോപാൽ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു സർവ്വകക്ഷിയോഗം വിളിക്കാൻ പ്രധാനമന്ത്രി തയ്യാറകണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു

ഇതിന് ബാങ്ക് അക്കൌണ്ടുകളുമായി പാൻ ബന്ധിപ്പിക്കേ ണ്ടത് നിർബന്ധമാണെന്നും ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ വാർത്താ കുറിപ്പിൽ ആദായനികുതി വകുപ്പ് വ്യക്തമാക്കി തുക നേരിട്ടും വേഗ ത്തിലും സുരക്ഷിതമായും ലഭിക്കുന്നതിന് ഇതാവശൃമാണെന്നും അറി യിപ്പിൽ പറയുന്നു ബാങ്ക് അക്കൌണ്ട് പാനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോയെന്ന് ആദായ നികുതി റിട്ടേൺ ഇ ഫയലിംഗ് നടത്തിയ വെബ് സ്റ്റൈറ്റ് വഴി അറി യാം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നവർ പാൻ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് ഈയിടെ നിർബന്ധമാക്കിയിരുന്നു

കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും

ഈ മാസം മൂന്നിനാണ് കാസർക്കോട്ട് യാത്ര തുടങ്ങിയത് ഏതു സമയം തിരഞ്ഞെടുപ്പ് നടന്നാലും നേരിടാൻ ഇടതുപക്ഷം സന്നദ്ധമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു എൽ ഡി എഫിന് കേരളത്തിൽ ചരിത്രവിജയം നേടാൻ കഴിഞ്ഞാൽ കേന്ദ്രഭരണത്തിൽ നിന്ന് ബി ജെ പിയെ പുറത്താക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പെരുമ്പാവൂരിൽ പറഞ്ഞു കേരള സംരക്ഷണയാത്രക്കു നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി രാജ്യത്ത് മതനിരപേക്ഷ ഗവ അധികാരത്തിൽ വരണമെങ്കിൽ ഇടതുപക്ഷം ജയിച്ചേ മതിയാകൂ വർഗീ യതയ്ക്കും ആർ എസ് എസിനുമെതിരെയുള്ള സമരത്തിലാണ് ഇട തുപക്ഷമെന്നും കോടിയേരി പറഞ്ഞു ട കാർക്ക് ർ സനാതന ധർമ പരിഷത്ത് നേതൃത്വം നൽകുന്ന ഹൈന്ദവം അയ്യ പ്പഭക്തസംഗമം വൈകീട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കും ശബരിമ ലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അനുഷ്ഠിച്ചുവരുന്ന വിവിധ സമു ദായക്കാരും പന്തളം രാജകൊട്ടാരം പ്രതിനിധിയും ഒരേ വേദിയിൽ അണിനിരക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അയ്യപ്പഭക്തജനസംഗമം വീഡിയോ സന്ദേശത്തിലൂടെ കാഞ്ചി കാമകോടി മഠാധിപതി വിജയേന്ദ്ര സരസ്വതി ഉദ്ഘാടനം ചെയ്യും ഹൈന്ദവം അയ്യപ്പഭക്ത സംഗമത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെട്ടുത്തി ഉച്ച് കഴിഞ്ഞ് മൂന്നു മുതൽ സമ്മേളനം സമാപിക്കുന്നതു വരെ ബീച്ച് റോഡു വഴി ലോറി കൾക്ക് പ്രവേശനമുണ്ടാകില്ല ഇന്ന് ദേശീയ ശാസ്ത്രദിനം

ശാസ്ത്രം ജനങ്ങൾക്ക് ശാസ്ത്രത്തിനായി ജനങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ശാസ്ത്രദിനത്തിന്റെ മുഖവാകൃം ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ കണ്ടെത്തുന്നതിന് കൂത്തു പറമ്പിൽ ആരംഭിക്കുന്ന ഫുഡ് അനലറ്റിക്കൽ ആന്റ് റിസർച്ച് ലാബിന്റെ തറക്കല്ലിടൽ ഇന്നുച്ചക്കു ശേഷം മന്ത്രി കെ ക ശൈലജ നിർവഹിക്കും കൂത്തുപറമ്പ് വലിയ വെളിച്ചത്താണ് ലാബ് സ്ഥാപി ക്കുന്നത് അഞ്ച് കോടി രൂപ ഗവ ഇതിനായി അനുവദിച്ചിട്ടുണ്ട് വനിതാ ദിനാചരണ പരിപാടികളുടെ ഭാഗമായി കോഴിക്കോട്ട് ഞായ റാഴ്ച അന്താരാഷ്ട്ര വനിത ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കും സമ ഭാവനകളുടെ നവകേരളം എന്ന ലോക വനിതാ ദിനത്തിന്റെ സന്ദേശം പ്രചാരിപ്പിക്കുന്നതിന് നവോത്ഥാന കേരളത്തിലേക്ക് സധൈര്യം മുന്നോട്ട് എന്ന കൃാമ്പയിനുമായി ബന്ധപ്പെടുത്തിയാണ് ചലച്ചിത്രോ ത്സവം വനിത ശിശുക്ഷേമ വകുപ്പ് സാമൂഹൃ സുരക്ഷാ മിഷൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പി ക്കുന്ന പരിപാടിയിൽ മുസ്താങ് ഒറ്റമുറി വെളിച്ചു് മാൻഹോൾ തുട ങ്ങിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും

കോഴിക്കോട്ട് ഐ ലീഗ് ഫുട്ബോളിൽ ആതിഥേയരായ ഗോകുലം എഫ്

ഇന്ന് ഐസാൾ എഫ്

പോയിന്റ് പട്ടിക യിൽ പത്താം സ്ഥാനക്കാരായ ഗോകുലത്തിന് ഇന്നത്തെ കളി നിർണാ യകമാണ്

സംസ്ഥാനത്ത് വേനൽചൂട് വർധിച്ച സാഹചര്യത്തിൽ വെയിലിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സമയം പുനഃക്രമീക രിച്ചു

വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ തെയ്യത്തെക്കു റിച്ച് പഠിക്കുന്നതിന് കണ്ണൂർ ചന്തപ്പുരയിൽ തെയ്യം മ്യൂസിയം സ്ഥാപി ക്കും മ്യൂസിയത്തിന് ഇന്ന് വൈകീട്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തറക്കല്ലിടും കണ്ണൂർ വിമാനത്താവളത്തിൽനിന്ന് മസ്കറ്റ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും

ഗോ എയർ ആണ് മസ്കറ്റി ലേക്ക് ആഴ്ചയിൽ മൂന്നുദിവസം സർവീസ് നടത്തുന്നത്